ത്രിപുരയിലെ നിരവധി അടിസ്ഥാന വികസന പദ്ധതികൾക്കും അദ്ദേഹം തൂടക്കം കുറിച്ചു ത്രിപുര ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ഒഴുകുന്ന ഫെനി നദിയ്ക്ക് കുറുകെയാണ് മൈത്രി സേതു എന്ന പേരിൽ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി സൌഹൃദ ബന്ധത്തെയാണ് മൈത്രി എന്ന പേരിലൂടെ ഉയർത്തിക്കാട്ടുന്നത്

പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ ഇരുസഭകളും രണ്ട് മണി വരെ നിർത്തി വച്ചു വിശദാംശങ്ങളുമായി കിരൺ ശങ്കർ പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനയ്ക്കെതിരെ പാർല മെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി കോൺഗ്രസ് ഇടതു പാർട്ടികൾ ഡിഎംകെ എൻസിപി ശിവസേന തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യമുയർത്തി ചോദ്യോത്തര വേള തടസ്റ്റപ്പെടുത്താതെ സീറ്റുകളിലേക്ക് മടങ്ങാൻ ലോക്സഭയിൽ സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല

രാജ്യസഭയിൽ വിഷയം പതിവ് ചർച്ചയ്ക്കിടെ ഉന്നയിക്കാമെന്ന് അറിയിച്ചെങ്കിലും സാധാരണ നടപടിട്ടിക്മം നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശൃത്തിൽ ്പ്രതിപക്ഷം ഉറച്ചു നിന്നു തുടർന്ന് പ്രതിഷേധം രൂക്ഷ്മിായതോടെ സഭ നിർത്തി വയ്ക്കുക ആയിരുന്നു ന്യൂസ് ഡസ്ക് ആകാശവീാണി

മത്സൃത്തൊഴിലാളികൾക്കായി നരേന്ദ്രമോദി സർക്കാർ പ്രത്യേക വകുപ്പ് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നതായും മന്ത്രി വൃക്തമാക്കി

ഡി

പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരത്തിനുശേഷം നാളെ സ്ഥാനാർഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന

ഐ നേതൃയോഗം തിരുവനന്തപുരത്ത് ഇന്നും തുടരും

ഡി

കോൺഗ്രസ് സ്ഥാനാർഥികളെ നിശ്ചയിക്കാനുള്ള സ്ക്രീനിങ് ് കമ്മിറ്റിക്കായി മുതിർന്ന നേതാക്കൾ ഡൽഹിയിലാണ്

ബിജെപിയിലെ സ്ഥാനാർഥി നിർണയം സംബന്ധിച്ച് അന്തിമരൂപം നൽകാൻ വൃാഴാഴ്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഡൽഹിയിൽ യോഗം ചേരും

കേരള ത്തിലേക്ക് കഴിഞ്ഞ ദിവസം കൂടുതൽ വാക്സിൻ എത്തിച്ചേർന്നു

ഇതോടെ സംസ്ഥാനത്ത് കൂടുതൽ കേന്ദ്രങ്ങളിൽ വാക്സിൻ കുത്തിവയ്പ്പ് സാധ്യമാകുള്ളിന്റ് ആരോഗൃ വകുപ്പ് അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വാക്സിനുമായുളള വിമാനങ്ങൾ ജമൈക്കയിലും തജിക്കിസ്ഥാനിലും ബെലിസിലും എത്തിച്ചേർന്നിട്ടുണ്ട്

അമേരി ക്കയിൽ നിരവധി പേർ വാക്സിൻ സ്വീകരിച്ചതിനാൽ കൂടുതൽ ഇള വുകൾ അനുവദിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം

തിരുവള്ളുവർ സർവകലാശാലയുടെ പതിനാറാമത് വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹം വെല്ലൂരിൽ പങ്കെടുക്കും

തീപിടിത്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിന് ഉന്നതതല അന്വേഷണം നടത്താൻ റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ ഉത്തരവിട്ടു ദുരന്തതിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുൾപ്പെടെ അനുശോചനം രേഖപ്പെടുത്തി

സുരേന്ദ്രൻ മുഖ്യമന്ത്രി വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു

എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇതിനോടകം പുറത്തിറക്കിക്കഴിഞ്ഞു

കോൺഗ്രസും ഡി

യും സീറ്റുവിഭജനം സംബന്ധിച്ച അന്തിമ തീരുമാനത്തിൽ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല

ജെ

ടി കെ മോഹൻ ബഗാൻ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും ഇന്നലെ നടന്ന മത്സരത്തിൽ എഫ്

സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വെനസ്വേലയിൽ നിന്ന് യുഎസിലേക്ക് പലായനം ചെയ്തവരാണ് ഇവർ വെനസ്വേലയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പുനഃപരിശോധിക്കുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട്